വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ രണ്ടാംപ്രതി ഫാ ജോബ്മാത്യു പൊലീസിൽ കീഴടങ്ങി അഭിമന്യു വധക്കേസിൽ രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്ത കർ കൂടി പിടിയിൽ രാജ്യത്തെ ആദ്യ ഇന്റർനെറ്റ് ടെലഫോണി സേവനത്തിന് ബിഎസ്എൻ എൽ തുടക്കം കുറിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ഏകദിനം വൈകിട്ട് നോട്ടിംഗ്ഹാമിൽ സ്വയംസ്ഹായസംഘങ്ങൾ സ്ത്രീകളെ സാമൂഹികമായും സാമ്പത്തികമായും ശക്തരാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു സാമ്പത്തികമായി ശക്തിയാർജ്ജിച്ച സ്ത്രീകൾ സാമൂഹിക തിന്മകൾക്കെതിരായ രക്ഷകരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് സ്വയംസഹായസംഘങ്ങളിൽ അംഗങ്ങളായ ഒരു കോടിയിൽ അധികം വനിതകളുമായി വീഡിയോ കോൺഫ്രൻസിംഗ് വഴി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി സ്ത്രീ ശാക്തീകരണത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം അനിവാര്യ മാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളുടെ സ്വയംസ ഹായസംഘങ്ങൾ നടത്തുന്ന സേവനങ്ങളെ അദ്ദേഹം പ്രകീർത്തി ച്ചു

ഇതിൽ അഞ്ച്കോടി വനിതകൾ സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്നും നരേ ന്ദ്രമോദി പറഞ്ഞു കാർഷിക മൃഗസംരക്ഷണമേഖലയിൽ സ്ത്രീകളൂടെ പങ്കാളിത്തം കൂടാതെ മുന്നോട്ടു പോകാനാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെ ട്ടു ത്രിദിന സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്ത്രമന്ത്രി രാജ്നാ ഥ്സിംഗ് നാളെ ബംഗ്ലാദേശിലേക്ക് തിരിക്കും ബംഗ്ലാദേശ് പ്രധാന മന്ത്രി ഷെയ്ഖ് ഹസീനയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷിബന്ധം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലെ സഹകരണം റോഹിങ്ക്യൻ അഭയാർത്ഥി പ്രശ്നം തുടങ്ങിയ വിഷയങ്ങൾ കൂടി ക്കാഴ്ചയിൽ ചർച്ചയായേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാജ്നാ ഥ്സിംഗിനെ അനുഗ്മിക്കും

കരിപ്പൂരിനോടുള്ള അവഗണനക്ക് എതിരെ കക്ഷി ഭേദമില്ലാതെ എംപിമാരും രാഷ്ട്രീയ നേതൃത്വവും ഒത്തൊരുമിച്ച് പോരാടണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തൊഴിലാളികളും കച്ചവടക്കാരും തീർഥാടകരും ഒരു പോലെ ആശ്രയിക്കുന്ന വിമാനത്താവളമാണ് കരിപ്പൂരിലേത് ഇവിടെ വലിയ വിമാനങ്ങൾ വരുന്നതിനും പോകുന്നതിനും ഇപ്പോൾ ഒരു തടസ്സവും ഇല്ല എല്ലാ സൌകര്യങ്ങളും ഉണ്ടായിട്ടും അവഗണിക്കുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി കരിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെയും ശ്രദ്ധയിൽപെടുത്തിയിട്ടുണ്ടെന്നും ഇരുവരുമായും കൂടിക്കാഴ്ചക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ഇയാളെ ചോദ്യംചെയ്യുന്നതിനായി കൊല്ലം പൊലീസ് കമ്മീഷണർ ഓഫീസിലെത്തിച്ചു കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ പീഡിപ്പിച്ചെന്നാണ് കേസ് ഇന്നല്ലെ ട്ഹെക്കോടതി കേസിലെ മൂന്ന് പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തളളി യിരുന്നു ജലന്ധർ ബിഷപ്പ് കന്യാസ്ത്രീയെ പ്പീഡിപ്പിച്ച കേസിൽ ജല ന്ധർ രൂപതയിൽ നിന്നും രാജിവെച്ചു കന്യാസ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണസംഘം തീരുമാനിച്ചു

മഹാരാജാസ്ട് കോള്ജ് വിദ്യാർത്ഥി അഭിമന്യുവധക്കേസിൽ രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൂടി പിടിയിലായി അരുക്കുറ്റി സ്വദേശികളായ ഷിഹറാസ് ഷാജഹാൻ എന്നിവരെയാണ് ആല പ്പുഴ വടുത്ലയിൽ നിന്ന് പൊലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവ രുടെ വീടുക്ളിലും സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ് മൊബൈൽഫോൺ സി ഡി എന്നിവ പിടിച്ചെടുത്തു കേസിൽ നേരത്തെ ആറുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യത്തെ ആദ്യ ഇന്റർനെറ്റ് ടെലിഫോണി സേവനത്തിന് പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബിഎസ്എൻഎൽ തുടക്കം കുറിച്ചു ബിഎസ്എൻഎൽ പുറത്തിറക്കിയ വിംഗ്സ് എന്ന ആപ്തിക്കേഷൻ വഴി ഇന്റർനെറ്റ് ഉപയോഗിച്ച് രാജ്യത്തെ ഏത് മൊബൈൽ ഫോണിലേക്കും കോൾ ചെയ്യാൻ സാധിക്കും ആപ്പ് ഉപയോഗിക്കാത്തർക്കും കോൾ ചെയ്യാം

കണ്ണൂർ ജില്ലയിലെ ഏക മിനി ജലവൈദ്യുത പദ്ധതിയായ ബാരാപോൾ പദ്ധതിയോടനുബന്ധിച്ച് കനാലിൽ നിന്ന് ചെളിയും മണലും നീക്കം ചെയ്ത് തുടങ്ങി

ഇതേ തുടർന്ന് വൈദ്യുതി ഉത്പാ ദനം നിർത്തിവെയ്ക്കുകയായിരുന്നു ചെളി പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഒരു മാസം വേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് ഭക്ഷ്യ ധാന്യ വിഹിതം കൂട്ടണമെന്ന സ്റ്സ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രഗവൺമെന്റിന്റെ പരിഗണന്നയിലുണ്ടെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു

കനത്തമഴയിൽ കോഴിക്കോട് ജില്ലയിലെ മലയോരമേഖലക ളിൽ വൻ കൃഷിനാശം

പലയിടങ്ങളിലും റോഡ് തകർന്ന് പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാ ണ് മാവൂർ ചേന്ദ്മംഗല്ലൂർ പുൽപ്പറമ്പ് മേഖലയിൽ എട്ട് ഹെക്ട റിലധികം വാഴയും കവുങ്ങും വെള്ളത്തിനടിയിലാണ് മൊത്തം രണ്ട്കോടിയിലധികം രൂപയുടെ കൃഷിനാശം ഉണ്ടായതായതാണ് കണക്ക്

പൊലീസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ എഫ്ഐആർ റദ്ദാക്ക ണമെന്ന് ആവശ്യപ്പെട്ട് എഡിജിപി സുദേഷ്കുമാറിന്റെ മകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹർജിയിൽ ഗവൺമെന്റ് നിലപാട് കോടതിയെ അറിയിച്ചേക്കും ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതി ഇന്ന് വിധി പറയും ആറു പൊലീസുകാർ പ്രതി കളായ കേസിൽ ഒരു വർഷംകൊണ്ടാണ് വിചാരണ പൂർത്തിയാ യത് ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകീട്ട് അഞ്ച് മുതൽ നോട്ടിങ്ങ്ഹാമിലാണ് മത്സ രം മൂന്ന് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്

തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ജില്ലാ വികസന സമിതിയുടെ തീരു മാനത്തിന് വിധേയമായി സ്നേഹ സ്പർശം പദ്ധതിയിലേക്ക് തുക വകയിരുത്തുന്നതിനാണ് ഗവൺമെന്റ് അംഗീകാരം നൽകിയത് വരും വർഷങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് സഹായങ്ങൾ മുടങ്ങാ തെ ലഭ്യമാക്കുകയാണ് സംയുക്ത പദ്ധതി ലക്ഷ്യമിടുന്നത് വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ധനസഹായം മരുന്ന് മാന സിക രോഗികൾക്ക് ചികിത്സയും മരുന്നും അഗതികളായ എയ്ഡ്സ് രോഗ ബാധിതർക്ക് താമസം ഭക്ഷണം മരുന്ന് ഉൾപ്പടെ എല്ലാ അടിസ്ഥാന സൌകരൃങ്ങളോട് കൂടിയ രണ്ട് കെയർ സെന്റർ ജീവിത ശൈലി രോഗനിർണ്ണയ മൊബൈൽ ക്ലിനിക്ക് അവയവ ദാന ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സ്നേഹ സ്പർശത്തിലൂടെ നടപ്പാക്കുന്നത്

ഇടിമൂഴിക്കൽ വെങ്ങളം റോഡ് ആറു വരിയാക്കുന്നതിന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് കോഴിക്കോട്ട് എം

ഹൈദ രാബാദ് ആസ്ഥാനമായ കെ

സി കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് ആറുവരി പാതയുടെ നിർമ്മാണ ചുമതല പദ്ധതി രണ്ട് വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കേരള വാട്ടർ അതോറിറ്റി ബിഎസ്എൻഎൽ പിഡബ്യുഡി റവന്യൂ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരോട് അനുബന്ധ പ്രവർത്തന ങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കണമെന്ന് എംപി ആവശ്യപ്പെട്ടു കല ക്ടർ യു

ജോസ് അധ്യക്ഷനായിരുന്നു

പെട്രോളിനും ഡീസലിനും സംസ്ഥാനത്ത് ഇന്നും വില വർധി ച്ചു പെട്രോളിന് ലിറ്ററിന് ആറുപൈസ്യും ഡ്രീസലിന് എട്ടു പൈസ യുമാണ് വർധിച്ചത് ബംഗളുരുവിൽ നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ലോറി കുറ്റ്യാടി ചുരത്തിൽ മൂന്നാംവളവിൽ മറിഞ്ഞ് ഡ്രൈവർ മരി ച്ചു

ഇന്നലെ രാത്രിയായിരുന്നു അപകടം

കുഴമ്പ് രൂപത്തിൽ കടത്തുകയായിരുന്നു സ്വർണം കോഴിക്കോട് സ്വദേശി മന്റ്യസിനെ കസ്റ്റഡിയിലെടുത്തു പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റിൽ പത്തര ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി ചെന്നൈ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ഖാദ റാണ് പിടിയിലായത് പഴകിയതും മായം ചേർത്തതുമുൾപ്പെടെ ഗുണനിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തിയതിന് പിടിക്കപ്പെടുന്ന ഹോട്ട ലുകളുടെയും വ്യാപാരസ്ഥാപനങ്ങളുടെയും പേരുകൾ പൊതുജന ങ്ങൾക്കു മുമ്പിൽ വെളിപ്പെടുത്തണമെന്ന് കണ്ണൂർ താലൂക്ക് വിക സന സമിതിയോഗം ആവശ്യപ്പെട്ടു നിയമം ലംഘിക്കുന്ന സ്ഥാപന ങ്ങളുടെ പേരുകൾ പുറത്തുവിടുന്നത് പൊതുജനങ്ങൾക്ക് അവ തിരിച്ചറിയാനും മറ്റുള്ളവർക്ക് പാഠമാവാനും ഉപകരിക്കുമെന്നും യോഗം വിലയിരുത്തി

പൊളിച്ചെഴുതുന്ന ഭരണഘടന ഹിന്ദുരാഷ്ട്രതത്വങ്ങളിൽ അധി ഷ്ഠിതമായിരിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഓഹരി വിപണി സർവ കാല റെക്കോർഡി ലെ ത്തി

രാജ്യാ ന്തര വിപണിയിലെ ഉയർച്ചയാണ് ഇന്ത്യൻ പ്രിപണിയിൽ കുതി പ്പിന് വിഴിവെച്ചത് ഉന്നതവിദ്യാഭ്യാസ മേഖലയെ മികവിലേക്ക് ഉയർത്തുന്നതിന് ഗവൺമെന്റ് പശ്ചാത്തല സൌകരൃം ഒരുക്കുമെന്ന് മന്ത്രി പ്രൊഫ

രവീന്ദ്രനാഥ് പറഞ്ഞു